ജെ

സി ടെസ്റ്റ് റാങ്കിംഗിൽ വിരാട് കോഹ്ലി ഒന്നാം സ്ഥാനം നിലനിർത്തി

ദേശീയ സംസ്ഥാന ജില്ലാതലങ്ങളിൽ ഉപഭോക്തൃതകർക്ക പരിഹാര കമ്മീഷനുകൾ രൂപീകരിക്കാൻ ബിൽ വിഭാവനം ചെയ്യുന്നു ജില്ലാതല കമ്മീഷനുകൾക്ക് ഒരു കോടി രൂപ വരെ അവകാശപ്പെടാവുന്ന പരാതികൾ പരിശോധിക്കാൻ കഴിയും

ഭക്ഷ്യവസ്തുക്കളിൽ മായം ചേർക്കുന്നിവർക്ക് കടുത്ത ശിക്ഷയും ബില്ലിൽ വൃവസ്ഥ ചെയ്തിട്ടു ് കേന്ദ്രമുന്തി രാംവിലാസ് പാസ്വാനാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്

കേന്ദ്രമന്ത്രി താവർ ചന്ദ് ഗഹ്ലോട്ട് അവതരിപ്പിച്ച ബിൽ ലോക്സഭ ശബ്ദവോട്ടോടെ പാസ്സാക്കി

ബഹളം മൂലം ലോക്സഭ ര ുതവണ നിർത്തിവെച്ചു കൂടുതൽ വിവരങ്ങളുമായി അർച്ചന

രഫാ്ൽ വിഷയത്തിൽ ഗവൺമെന്റ് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് രേഖ്വാമൂലം അറിയിച്ചിട്ടുള്ളതായി ശ്രീ വെങ്കയ്യ നായിഡു വ്യക്തമാക്കി ് എന്നാൽ സഭാതലം കൂടുതൽ പ്രക്ഷുബ്ധമായതോടെ രാജ്യസഭ ഇന്നത്തേയ്ക്ക് പിരിഞ്ഞു

നേരത്തെ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് എ ഐ എ ഡി എം കെ ടിഡിപി അംഗങ്ങൾ ബഹളം വെച്ചതിനെ തുടർന്ന് സഭ ഉച്ചവരെ നിർത്തിവെച്ചിരുന്നു ന്യൂസ് ഡെസ്ക് ആകാശവാണി

റിസർവ് ബാങ്കിന്റെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കാൻ ബാങ്കുകൾക്ക് കഴിയും

ജി മാരുടെയും മൂന്ന് ദിവസത്തെ വാർഷിക സമ്മേളനത്തിന് ഗുജറാത്തിൽ തുടക്കമായി നർമ്മദ ജില്ലയിലെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിക്ക് സമീപം ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മേധാവികൾ സുരക്ഷ ഏജൻസികളുടെ മേധാവികൾ തുടങ്ങിയവർ പങ്കെടുക്കുന്നു നാളെ മുതൽ ര ് ദിവസം ഗുജറാത്ത് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചടങ്ങിൽ പങ്കെടുക്കും ജമ്മുകാശ്മീരിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ അതിർത്തി കടന്നുള്ള ഭീകരവാദം എന്നിവ വാർഷിക യോഗത്തിൽ പ്രധാനമായും ചർച്ചു ചെയ്യും

സാമുദായിക സംഘർഷം ഉ ാകുമെന്നതിന്റെ അടിസ്ഥാനത്തിൽ രഥയാത്രയ്ക്ക് അനുമതി നിഷേഷധിച്ച പശ്ചിമബംഗാൾ ഗവൺമെന്റിന്റെ നടപടിക്കെതിരെ പാർട്ടി സമർപ്പിച്ച ഹർജിയിലാണ് വിധി ഗവൺമെന്റ് പ്രതിനിധികളുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ് പാർട്ടി വീ ും കോടതിയെ സമീപിച്ചത്

ഹൈക്കോടതി വിധി സ്വാഗതം ചെയ്യുന്നതായി കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലി ട്വിറ്ററിൽ കുറിച്ചു

ബ്രിട്ടീഷുക്കാർക്കെതിരായ പൈക്ക വിപ്തവം അനുസ്മരിപ്പിക്കുന്ന പൈതൃക മ്യൂസിയം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും

കേന്ദ്ര വാണിജ്യമന്ത്രാലയത്തിന് കീഴിലുള്ള വ്യവ്സായ നയ പ്രോത്സാഹന വകുപ്പാണ് തെരഞ്ഞെടുപ്പ് ന്ടത്തിയത്

നൂറ് ശതമാനം പ്രപർത്തന മികവ് നേടിയാണ് ഗുജറാത്ത് മുന്നിലെത്തിയത്

ന്യൂഡൽഹിയിൽ മദ്രാസ് ഐ ഐ ടിയിലെ സ്റ്റുഡന്റസ് ലജിസ്തേറ്റീവ് കൌൺസിൽ അംഗങ്ങളുമായി ആശയവിനിമയം നടത്തുകയായിരുന്നു ജനപ്രതിനിധികൾ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കായി അദ്ദേഹം സഭകളിൽ സാധാരണക്കാരുടെയും അധസ്ഥിതരുടെയും ആവശ്യങ്ങൾക്കായി നിലകൊള്ളണം

ന്യൂഡൽഹിയിൽ ഭക്ഷ്യ സംസ്ക്കരണ വ്യവസായ അസ്സോസിയേഷന്റെ പ്പാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്ന് അദ്ദേഹം കൂടുതൽ വിവരങ്ങളുമായി അർച്ചന

സാമ്പത്തിക് പ്രശ്നം എന്നതിലുപരി ധാർമ്മികതയുടെ വിഷയവും ഇതിലടങ്ങിയിട്ടു ്

കർഷകരുടെ ജീവിതോപാധിയാണ് കൃഷിയും കാർഷികോൽപ്പാദനവും എന്നാൽ ഭക്ഷ്യ സംസ്ക്കരണ വ്യവസായ മേഖല കാർഷിക രംഗത്ത് വലിയ ഉത്തേജനമാണ് നല്കുന്നത് ഇത് പരസ്പര പൂരകമാണ് ഭക്ഷ്യവസ്തുക്കൾ പൊതിഞ്ഞു സൂക്ഷിക്കാൻ പ്ലാസ്റ്റിക്ക് കവറുകൾക്കു പകരം യോഗ്യമായ വസ്തുക്കൾ പ്രയോജനപ്പെടുത്തണം

ന്യൂസ് ഡെസ്ക് ആകാശവാണി

വനിതാ മതിൽ രാഷ്ട്രീയ് പരിപാടിയല്ലെന്നും ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യപ്പാങ്മൂലത്തിൽ ഗവൺമെന്റ് വ്യക്തമാക്കി മതിലിൽ പങ്കെടുക്കാത്തപ്പർക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കില്ലെന്നും ഗവൺമെന്റ് ക്ടോടതിയെ അറിയിച്ചു

ജില്ലാ കളക്ടർമാരുടെ വാർഷികസമ്മേളനത്തിന്റെ ര ാംദിനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ആദിവാസി ഭൂവിതരണത്തിനുള്ള നടപടികൾ കളക്ടർമാർ വേഗത്തിലാക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു

എഫ്

എഫ്